സംസ്ഥാനത്തെ വാഹനപരിശോധനക്ക് ഡിജിപി കൃത്യമായ മാർഗ്ഗനിർദേശങ്ങൾ പുറ്റപ്പെടുവ്വിച്ചു പരിശോധനാ ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തണം മഹാരാഷ്ട്ര നിയമസഭാ സ്പീക്കറായി ത്രികക്ഷിസഖ്യ സ്ഥാനാർത്ഥി നാനാപട്ടോൾ എതിരില്ലാതെ തെരഞ്ഞെടു ക്കപ്പെട്ടു ഐഎസ്എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് അഭി മാന പോരാട്ടം കലൂർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് ഗോവ എഫ്സിയെ അവർ നേരിടും ഇന്ന് ലോക എയ്ഡ്സ് ദിനം

രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷിക്കുകയെന്ന സുപ്രധാന ദൌത്യം പ്രശംസനീയമായ തരത്തിൽ നിറവേറ്റുന്നവരാണ് സേനാംഗങ്ങളെന്ന് പ്രധാനമന്ത്രി ടിറ്ററിൽ കുറിച്ചു പ്രകൃതിദുരന്ത വേളകളിലും മറ്റ് നിർണായക ഘട്ടങ്ങളിലും ബിഎസ്എഫിന്റെ കൃത്യനിർവ്വഹണത്തെ അദ്ദേഹം അനുസ്മ രിച്ചു

ഇന്ത്യാ പാക്ക് അതിർത്തിയിൽ ആളില്ലാ വിമാനങ്ങളുടെ കട ന്നുകയറ്റം തടയാനും ആക്രമണം ചെറുക്കാനും സാങ്കേതിക മാർഗ്ഗങ്ങൾ രൂപപ്പെടുത്തിവരികയാണെന്ന് ബിഎസ്എഫ് ഡയ റക്ടർ ജനറൽ വി കെ ജോഹ്റി ന്യൂഡൽഹിയിൽ പറഞ്ഞു

സംസ്ഥാനത്തെ വാഹനപരിശോധനക്ക് ഡിജിപി കൃത്യമായ മാർഗനിർദേശങ്ങൾ പുറപ്പെടുവിച്ചു സ്ബ്ബ് ഇൻസ്പെക്ടറടക്കം നാലുപേരടങ്ങിയ സംഘമായിരിക്കണും വാഹനപരിശോധന നട ത്തേണ്ടത് ഇവരിലൊരാൾ ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്ത ണം പരിശോധനയിൽ ലാത്തി ഉപയോഗിക്കാനോ യാത്രക്കാ രുടെ ശരീരത്തിൽ സ്പർശിക്കാനോ പാടില്ലെന്നാണ് നിർദ്ദേശം

ഇതിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ ജില്ലാ പൊലീസ് മേധാവി കൾക്കായിരിക്കും ഉത്തരവാദിത്വമെന്നും മാർഗ്ഗനിർദേശത്തിൽ പറയുന്നു കൊല്ലത്ത് വാഹനപരിശോധനക്കിടെ യാത്രക്കാരന് പരിക്കേ റ്റതിനെ തുടർന്നാണ് ഡിജിപി മാർഗ്ഗനിർദേശങ്ങൾ വൃക്തമാക്കി യത്

പിൻസീറ്റ് യാത്രികരിൽ ഹെൽമെറ്റ് ധരിക്കാതെ യാത്ര ചെയ്ത വരെ ഉപദേശം നൽകി വിട്ടയച്ചു യുവമോർച്ച നേതാവ് കെ

ജയകൃഷ്ണൻ ബലിദാന ദിനം ഇന്ന് ആചരിക്കുകയാണ് രാവിലെ തലശ്ശേരി പ്രാനൂരിനടുത്ത് സ്മൃതി മണ്ഡപത്തിൽ കേന്ദ്ര മന്ത്രി വി മുരളീധ്രൻ പുഷ്പാർച്ചന നടത്തി വൈകുന്നേരം അനുസ്മരണ റാലിയും സംഘടിപ്പിക്കും പാനൂർ ബസ് സ്റ്റാൻഡിൽ അനുസ്മരണ് സ്മ്മേളനം

സംസ്ഥാന ജനറൽ സെക്രട്ടറി എം

രമേഷ് ഉദ്ഘാടനം ചെയ്യും മഹാരാഷ്ട്ര നിയമസഭാ സ്പീക്കറായി ശിവസേന കോൺഗ്ര സ് എൻസിപി സ്ഥാനാർത്ഥി നാനാ് പട്ടോളിനെ എതിരില്ലാതെ തെരഞ്ഞെടുത്തു ബിജെപി സ്ഥാനാർത്ഥി കിഷൻ കാതോഡ് പത്രിക പിൻവലിച്ചതിനെ തുടർന്നാണ് ത്രികക്ഷി സഖ്യ സ്ഥാനാർത്ഥി സ്പീക്കറായത്

സമൂഹത്തിൽ വിഭാഗീയത സൃഷ്ടിക്കാനും ഏറ്റുമുട്ടലിന്റെ സാഹചര്യം ഒരുക്കാനും ആ നീക്കം കാരണമാവുമെന്ന് അദ്ദേഹം പിടിഐക്ക് നൽകിയ അഭി മുഖത്തിൽ പറഞ്ഞു ജനാധിപത്യ സംവിധാനത്തിൽ ഓരോ വൃക്തിക്കും കോട തിയെ സമീപിക്കാൻ അവകാശമുണ്ടെങ്കിലും ഏകകണ്ഠമായ വിധിയിലൂടെ പരമോന്നത കോടതി പുറപ്പെടുവിച്ച വിധിയെ ചോദ്യം ചെയ്യുന്നത് സദുദ്ദേശപരമല്ലെന്നും നഖ്വി അഭിപ്രായ പ്പെട്ടു

ഇതിൽ വീഴ്ചവരുത്തിയാൽ വാഹനം വിറ്റ ഡീലർഷിപ്പിനെതിരെ നടപടി എടുക്കാനാണ് നീക്കം

നമ്പർ പ്ലേറ്റ് നൽകേണ്ട ഉത്തരവാദിത്വം വാഹനം വിൽക്കുന്ന ഡീലർഷിപ്പിനായിരിക്കും ഹോട്ടൽ മാനേജ്മെന്റിലും റിയൽ എസ്റ്റേറ്റ് അനുബന്ധ വിഷ യങ്ങളിലും വിദൂരപഠന കോഴ്സുകൾ തടഞ്ഞ് സർവ്വകലാശാലാ ധനകാരൃ കമ്മീഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചു ഈ അധ്യയന വർഷം മുതൽ അത്തരം കോഴ്സുകൾക്ക് അംഗീകാരം നൽകു ന്നതല്ലെന്ന് യുജിസി വൃക്തമാക്കി എന്നാൽ അംഗീകൃത സ്ഥാപ നങ്ങളിൽ ഈ വർഷം പ്രവേശ്നം നേടിയവർക്ക് കോഴ്സ് പൂർത്തീകരിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട് അതേസമയം തുടർ വർഷങ്ങളിൽ കോഴ്സുകൾക്ക് അംഗീകാരം നൽകുന്നതല്ല മോട്ടോർവാഹന അദാലത്തുകളിൽ നിന്ന് പിൻമാറാൻ തിരു വന്തപുരം ബാർഅസോസിയേഷൻ യൂണിറ്റ് തീരുമാനിച്ചു ഇക്കാര്യം ബാർക്കൌൺസിൽ വഴി ഹൈക്കോടതിയെ അറിയി ക്കാനും അസോസിയേഷൻ യോഗം തീരുമാനിച്ചിട്ടുണ്ട് മോട്ടോർവാഹന കേസുകളിൽ നഷ്ടപരിഹാരത്തുക പരാതിക്കാ രുടെ അക്കൌണ്ടിലേക്ക് നേരിട്ട് നിക്ഷേപിക്കണമെന്ന ഹൈക്കോ ടതി നിർദേശത്തിനെതിരെയാണ് ബാർഅസോസിയേഷൻ പ്രമേ യം

ഗോവ എഫ്സിയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ കൊച്ചി കലൂർ നെഹ്റു സ്റ്റേഡിയത്തിൽ വൈകിട്ട് ഏഴരക്കാണ് മത്സരം നാളെ കണ്ണൂരിൽ ആരംഭിക്കുന്ന ദേശീയ വനിത ബോക്സിംഗ് ചാമ്പൃൻഷിപ്പിൽ പങ്കെടുക്കുന്നത്തിന് ടീമുകൾ എത്തിത്തുടങ്ങി അസം മേഘാലയ നാഗാലാന്റ് ടീമുകളാണ് ഇന്നലെ എത്തിയത്

ഇന്ന് ലോക എയ്ഡ്സ് ദിനം കമ്മ്യൂണിറ്റി മെയ്ക്ക് ദ ഡിഫ റൻസ് എന്നതാണ് ഈ വർഷത്തെ എയ്ഡ്സ് ദിന സന്ദേശം എച്ച് ഐ വി വൈറസ് വ്യാപനം തടയുക മരണ നിരക്ക് കുറ യ്ക്കുക ശരിയായ അവബോധം സൃഷ്ടിക്കുക എന്നീ ലക്ഷ്യ ങ്ങളോടെയാണ് ദിനാചരണം ലോക എയ്ഡ്സ് ദിനത്തോടനുബന്ധിച്ച് കോഴിക്കോട് ഗവൺമെന്റ് നഴ്സിംഗ് കോളജിന്റെ ആഭിമു ഖ്യത്തിൽ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു

വൈകിട്ട് ഏഴ് മണിക്ക് പുതിയ ബ്സ് സ്റ്റാന്റിൽ എയ്ഡ്സ് ബോധ വൽക്കരണ തെരുവ് നാടകവും പ്രതീകാത്മക മെഴുകുതിരി കത്തിക്കലും നടക്കുര് കൂടാതെ ഫോക്കസ്മാളിൽ ഫ്ളാഷ്മോബും സംഘടിപ്പിക്കും ആലത്തൂർ ശ്രീനാരായണ കോളജിലെ എൻസിസി കേഡറ്റു കളെ മർദ്ദിച്ച സംഭവം മനുഷ്യാവകാശ ലംഘനമാണെന്ന് സംസ്ഥാന ്യുവജന കമ്മീഷൻ വിലയിരുത്തി ഈ നിലപാട് വ്യക്തമാക്കി ഗവൺമെന്റിന് റിപ്പോർട്ട് നൽകുമെന്ന് കമ്മീഷൻ ചെയർപേഴ്സൺ ചിന്താ ജെറോം അറിയിച്ചു

ഗവൺമെന്റ് എഞ്ചിനിയറിംഗ് കോളേജ് ഗ്രൌണ്ടിൽ മത്സരങ്ങൾ മന്ത്രി വി

സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു

ശബരിമലക്ഷേത്രത്തിൽ അപ്പം അരവണ നിർമാണ സാമ ഗ്രികൾ പുറത്തു നിന്നും വാങ്ങാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചു ടെൻഡൻ ഏറ്റെടുത്ത ക്ഷമ്പനിക്ക് ആവ ശൃമായത്ര ശർക്കര നൽകാൻ കഴിയാത്തും തീർത്ഥാടകർ കൊണ്ടുവരുന്ന നെയ്യ് തികയാത്തതുമാണ് തീരുമാനത്തിന് കാര ണം

രാവിലെ കവറത്തി യിൽ നിന്ന് മറ്റ് ദ്വീപുകളിലേക്ക് പുറപ്പെട്ട സ്പീഡ് ബോട്ടുകൾ മോശം കാലാവസ്ഥയെ തുടർന്ന് തിരിച്ചുവിട്ടു മത്സ്യത്തൊഴിലാ ളികൾ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു